ഇന്ന് പരിസ്ഥിതി സംര്ക്ഷണത്തിലും വികസനം ന് യാഥാർത്ഥ്യമാക്കുന്നതിനുമാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

തുടർച്ചയായ വർദ്ധന

ഐ

ബാംഗ്ലൂർ ഡൽഹി കൃാപിറ്റൽസിനെ നേരിടും

സാമൂഹൃ ശാക്തീകരണത്തിന് ഉത്തരവാദിത്ത നിർമിത ബുദ്ധി എന്ന ആശയം ആസ്പദമാക്കി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ

വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മാറ്റത്തിനും ശാക്തീകരണത്തിനും നിർമ്മിതബുദ്ധി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതു സംബന്ധിച്ചു ആശയ വിനിമയത്തിന് ഉച്ചകോടി വഴിയൊരുക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിർമ്മിതബുദ്ധിയുമായി ബ്ലൂന്ധപ്പെട്ട വിദഗ്ദ്ധരെ ഒരുമിപ്പിക്കുന്നതിനും ആശയങ്ങൾ പങ്കുപ്പയ്ക്കുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുമെന്നും പ്രിയ്യാന്മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂറും സംസ്ഥാന ധനകാര്യ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും

കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപ്പാതയുടെ പദ്ധതി സമർപ്പണം വീഡിയോ കോൺഫ്രൻസിംഗിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അനാവശ്യമായ വിവാദങ്ങളോ വിമർശനങ്ങൾക്കോ മുന്നിൽ കീഴടങ്ങുന്നത് നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിന് സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ നാടിന്റെ വികസനം എന്നത് നാടിന്റെ ആകെ വികസനമാണ് എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ശരിയായ ഏത് പ്ലിമ്റ്റ്ശനത്തേയും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സുർക്കാർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിപാടിയുടെ ഭ്യാഗ്മായി തിരുവമ്പാടിയിലും മേപ്പാടിയിലും ചടങ്ങുകൾ സൃം ്ലീട്ടിപ്പിച്ചിരുന്നു

ഇ

സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് രോഗമുക്തി രേഖപ്പെടുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി്

നിരോധനാജ്ഞ കോവിഡ് വ്യാപനം തടയാൻ സഹായിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

രണ്ടു ദിവസത്തിനകം പ്രവർത്തനം സാധാരണ നിലയിലാകുമെന്ന് അധികൃതർ അറിയിച്ചു

പനയം ആലപ്പാട് ചവറ തെക്കുംഭാഗം നീണ്ടകര തൃക്കരുവ എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് അടച്ചത് പനയം റെഡ്സോണായും മറ്റ് അഞ്ച് പഞ്ചായത്തുകളും ക്രിട്ടിക്കൽ കണ്ടെയിൻമെന്റ് സോണായും പ്രഖ്യാപിച്ചു

പാചകം ചെയ്ത ഭക്ഷണങ്ങൾ വിതരണ്ട് ച്ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു

എം ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്തി

എം ചിറ്റിലങ്ങാട് പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പി യു സനൂപിനെയാണ് കുത്തിക്കൊലപ്പെടു ത്തിയത് സംഘർഷത്തിൽ മൂന്ന് സി

അക്രമികൾ എത്തിയതെന്ന് സംശയിക്കുന്ന കാർ കുന്നംകുളം ആശുപത്രിക്ക് സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിൽ സി

ജെ

എസ് എസ് പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് സി

ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങിയ സംഘം നടത്തിയ മന്ത്രി തല ചർച്ചയിൽ പദ്ധതിക്ക് സർക്കാരിന്റെ അനുമതി ലഭിച്ചു വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ടോം മാത്യു

ദുബായിൽ നടന്ന മത്സര്ത്തിൽ ചെന്നൈ പത്ത് വിക്കറ്റിനാണ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയത്

ഡി സന്തോഷ് ഈപ്പന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വക്കീൽ നോട്ടീസ് ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പു പറയുകയോ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുകയോ വേണമെന്ന് നോട്ടീസിൽ പറയുന്നു

തിരുനാൾ ആഘോഷം യൂട്യൂബ് വഴി കാണാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്

പ്രകൃതിയേയും ആവാസ വ്യവസ്ഥാ കേന്ദ്രങ്ങളേയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ഐക്യരാഷ്ട്ര സ്ട്രഭയുടെ ആഹ്വാന പ്രകാരം ആവാസ ദിനമായി ആചരിക്കുന്നത്